ശതമാനം അധിക നികുതി ഏർപ്പെടുത്തി

സായ് പ്രണീത് ഇന്ന് ജപ്പാൻ താരവുമായി ഏറ്റുമുട്ടും

അമേരിക്കൻ പ്രസിഡന്റ് ഡോണൾഡ് ട്രംപിന്റെ വിവാദ പ്രസ്താവനയ്ക്ക് ശേഷം ഇതാദൃമായാണ് ഇരുരാജ്യങ്ങളിലേയും നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുന്നത്

ഇക്കാര്യം യു എസ് വിദേശകാര്യ സെക്രട്ടറി മൈക്ക് പോംപിയോയെ അറിയിച്ചതായി അദ്ദേഹം പറഞ്ഞു ഒൻപതാമത് കിഴക്കനേഷ്യൻ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയതിനിടെ ഇന്ന് രാവിലെയാണ് ശ്രീ ജയ്ശങ്കർ മൈക്ക് പോംപിയോയുമായി കൂടിക്കാഴ്ച നടത്തിയത് കശ്മീർ വിഷയത്തിലുള്ള ഏത് ചർച്ചയും പാകിസ്ഥാനുമായി മാത്രമായിരിക്കും അതും ഉഭയകക്ഷി ചർച്ച മാത്രം ഇന്ത്യയും പാകിസ്ഥാനും ആവശ്യപ്പെട്ടാൽ വിഷയത്തിൽ ഇടപെടാമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡോണൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയായാണ് ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയത്

കഴിഞ്ഞയാഴ്ച പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും കശ്മീർ പ്രശ്നം പരിഹരിക്കാൻ ട്രംപ് സഹായം വാഗ്ദാനം ചെയ്തിരുന്നു അമേരിക്കയോട് ഇത്തരത്തിലുള്ള ഒരാവശ്യവും ഉന്നയിച്ചിട്ടില്ലെന്നും ഇന്ത്യ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് ആകാശവാണി

കോണക്രി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലിറങ്ങിയ രാഷ്ട്രപതിയ്ക്ക് ഗുനിയൻ പ്രസിഡന്റ് ആൽഫാ കോണ്ടിയും ഗുനിയയിലെ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരും ചേർന്ന് ഊഷ്മള സ്വീകരണം നൽകി പടിഞ്ഞാറൻ ആഫ്രിക്കയുടെ തെക്കുപടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന വികസ്വര രാജ്യമാണ് ഗുനിയ

ഗുനിയൻ പ്രസിഡന്റ് ആൽഫ കോണ്ടിയുമായി ഇന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉഭയകക്ഷി ചർച്ച നടിത്തും ഇരു രാജ്യങ്ങളും തമ്മിൽ വിവിധ കരാറുകളിലും ഒപ്പുവൃത്ക്കും

നാളെ ഇന്ത്യൻ സമൂഹത്തെ ശ്രീ രാംനാഥ് ക്കോഷിന്ദ് അഭിസംബോധന ചെയ്യും

ബിൽവീണ്ടുംലോക്സഭയുടെ പരിഗണനയ്ക്ക്അയക്കും

രാജ്യത്തെ മെഡിക്കൽവിദ്യാഭ്യാസമേഖലയിൽഒട്ടേറെ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ ദേശീയമെഡിക്കൽ കമ്മീഷൻ ബില്ലിന് സാധിക്കുമെന്ന്കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോ

ബില്പിൻമേലുള്ള ചർച്ചയ്ക്ക്രാജ്യസഭയിൽമറുപടി നൽകുകയായിരുന്നുഅദ്ദേഹം

ദേശീയമെഡിക്കൽ കമ്മീഷന് ആവശ്യമായ നിർദ്ദേശങ്ങൾ മാത്രമെഗവൺമെന്റ്കൈമാറുകയുള്ളൂഎന്ന് നിതിആയോഗ്അംഗംഡോ

കുട്ടികൾക്കെതിരെയുള്ളഅതിക്രമം പോലെയുള്ള കുറ്റകൃതൃങ്ങളിലേർപ്പെടുന്നവർക്ക് പുതിയ നിയമം അനുസരിച്ച് വധശിക്ഷ വരെ ലഭിക്കാൻ ബിൽവൃവസ്ഥചെയ്യുന്നു കുട്ടികളുടെ നഗ്നതചിത്രീകരിച്ച് പ്രദർശിപ്പിക്കുന്നവർക്ക് അഞ്ച്വർഷം തടവുംപിഴയുംലഭിക്കും രാജ്യത്തെ എല്ലാകുട്ടികൾക്കും നീതി ഉറപ്പുവരുത്തുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് ബില്ലിൻമേലുള്ളചർച്ചയ്ക്ക്മറുപടിനൽകവെകേന്ദ്ര മന്ത്രി സ്മൃതിഇറാനി പറഞ്ഞു

പെൺകുട്ടിയെമറ്റൊരുആശുപത്രിയിലേക്ക്മാ റ്റുന്നത്സംബന്ധിച്ച് പിന്നീട്തീരുമാനിക്കുമെന്റ്റ്കോടതിഅറിയിച്ചു

നഷ്ടപരിഹാരത്തിന് പുറമെഉന്നാവോസംഭവവുമായി ബന്ധപ്പെട്ട അഞ്ച്കേസുകൾ ഉത്തർപ്രദേശ്കോടതിയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റാനും സുപ്രീംകോടതിഉത്തരവിട്ടിട്ടുണ്ട്

ഇന്നലെ രാത്രി ഷോപ്പിയാൻ ജില്ലയിലെ പന്ദുഷാൻ ഗ്രാമത്തിൽ സൈന്യം നടത്തിയ തിരിച്ചിലിനിടെയാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത് പ്രദേശത്ത് ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണ്

മ്യാൻമാറിൽ നിന്നുള്ള കോ സ്വീ വിൻ തായ്ലന്റിൽ നിന്നുള്ള അഗ്ഹാന നീലാപായ് ജിത്ത് ഫിലിപൈൻസ് സ്വദേശി റെയ്മൻഡോ പുജാന്റെ ദക്ഷിണകൊറിയയിൽ നിന്നുള്ള കിം ജോംങ് കീ എന്നിവർക്കും മാഗ്സസേ പുരസ്കാരം ലഭിച്ചു

വാണിജ്യകരാറുകൾ പാലിക്കുന്നതിന് ചൈന പ്രാധാന്യം നൽകുന്നില്ലെന്നും അമേരിക്കൻ കാർഷികഉത്പന്നങ്ങൾ കൂടുതലായിവാങ്ങുമെന്ന വാഗ്ദാനം അവർലംഘിച്ചതായും ട്രംപ് ആരോപിച്ചു

നിരോധനം പൊതുസ്ഥലങ്ങളിലുംവിദ്യാഭ്യാസസ്മാപനങ്ങളിലുംപൊതുഗതാഗതസം വിധാനങ്ങളിലും ഇനി മുതൽസ്ത്രീകൾക്ക്മുഖാവരണം ധരിക്കാനാവില്ല

ഒരാഴ്ചയ്ക്കിടെ മൂന്നാമത്തെ മിസൈൽ പരീക്ഷണമാണ് ഉത്തരകൊറിയ നടത്തുന്നത് ഇന്ന് പുലർച്ചെ ഉത്തരകൊറിയയുടെ കിഴക്കൻ തീരത്താണ് പരീക്ഷണം നടത്തിയതെന്ന് ദക്ഷിണകൊറിയൻ അധികൃതർ അറിയിച്ചു

സ്വർണവിലയിൽ വർദ്ധന

മൂന്ന് മത്സരങ്ങളുളള പരമ്പര ഫ്ളോറിഡയിലും ഗയാനയിലുമായാണ് നടക്കുന്നത്